ശക്തവും ഊർജ്ജസ്വലവുമായ ഇന്തൃക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ബിഹാറിൽ മൂന്നാർഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് ന് നാളെ

പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ

വട്ടമേശാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആഗോള സമ്പദ്വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിന് ഇന്തൃക്ക് വലിയ പങ്കു വഹിക്കാനാകും നിക്ഷേപ്കർക്ക് ലാഭത്തോടെയും വിശ്വാസൃതയോടെയും നിക്ഷേപിക്ക്ടാൻ ക്ഴിയുന്ന ഇടമാണ് ഇന്തൃ

അടുത്തിടെ കൊണ്ടു വന്ന കാർഷിക പരിഷ്ക്കാർങ്ങൾ രാജ്യത്തെ കർഷകർക്ക് കൂടുതൽ അവസരങ്ങൾ നല്കുന്നു് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കാർഷിക കയറ്റുമതിയുടെ കേന്ദ്രമാവാൻ ഒരുങ്ങുകയാണ് രാജ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കേന്ദ്രധനമന്ത്രാലയവും ദേശീയ നിക്ഷേപക അടിസ്ഥാന സൌകര്യനിധിയും സംയുക്തമായാണ് നിക്ഷേപക വട്ടമേശാ സമ്മേളനം സംഘടിപ്പിച്ചത്

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവലോകനം ചെയ്യാനും പ്രാദേശിക ആഗോള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമാണ് ഉച്ചകോടി നിരവധി കരാറുകൾക്കും ഉച്ചകോടിയിൽ തീരുമാനമാകും

രാവിലെ ഏഴു മണിമുതൽ വൈകിട്ട് ആറുവരെയാണ് പോളിംഗ് നക്സൽ ബാധിത ജില്ലകളായ രാംനഗർ മഹിഷി തുടൂങ്ങിയിടങ്ങളിൽ പോളിംഗ് വൈകുന്നേരം നാലുമണിക്ക് അവസ്മാനിക്കും

വോട്ടിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നീയിച്ചു

പൂർണ്ണിയ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു ശ്രീ

വോട്ടെണ്ണൽ ഈ മാസം പത്തിന് നടക്കും

നരവനേയ്ക്ക് നേപ്പാൾ പ്രസിഡന്റ് ബിദൃദേവി ഭണ്ടാരി ഓണററി ജനറൽ പദവി നൽകി നേപ്പാൾ പ്രസിഡന്റെ ഔദ്യോഗിക വസതിയായ ശീതൽ നിവാസിൽ നടന്ന പ്രത്യേക ചടങ്ങിലാണ് ശ്രീ

നേപ്പാൾ പ്രധാനമന്ത്രി കെ

ശർമ്മ ഒലി ഇന്ത്യൻ അംബാസിഡർ വിനയ്

വിമാനം ഇറങ്ങിയ ശേഷം വിമാനത്താവളത്തിലെ ഹെൽത്ത് കൌണ്ടറിൽ ചെന്നും യാത്രക്കാർക്ക് അപേക്ഷ പൂരിപ്പിക്കാവുന്നതാണ്

എന്നാൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഇത്തരം സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയില്ല സന്ദർശകർ നിർബന്ധമായും ശാരീരിക അകലം പാലിക്കേണ്ടതും മാസ്ക് ധരിക്കേണ്ടതുമാണ് മ്യൂസിയം ആർട്ട് ഗാലറി തുടങ്ങിയ ഇടങ്ങളിൽ സന്ദർശകരുടെ ശരീര താപനില പരിശോധിക്കാനും കൈ കഴുകാനും സാനിറ്റൈസർ ഉപയോഗിക്കാനുമുള്ള സംവിധാനവും ഉറപ്പുവരുത്തണം

ഇന്നലെ നടന്ന നാലാമത് ഇന്ത്യ ഒപെക് ഉന്നതതല ഊർജ ഉച്ചകോടിയിൽ ഒപെക് സെക്രട്ടറി ജനറൽ മുഹമ്മദ് സൻസൂയി ബർക്കിണ്ടോയ്ക്കൊപ്പം സംയുക്തമായി അദ്ധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം

ആഗോളവത്കരണത്തെ നിർവചിക്കുന്നത് സാമ്പത്തിക അജണ്ടമാത്രം കണക്കാക്കി ആകരുത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന അദ്ദേഹം ആവർത്തിച്ചു കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒപെക് ഇന്ത്യക്ക് കൂടുതൽ ദ്രവീകൃത വാതകം നൽകി ഇതിൽ ഒപെകിനോടും സൌദി അറേബൃ യു

പരസ്പര ഗൂണത്തിനും സമൃദ്ധിക്കുമായി ഒപെക് അംഗരാജ്യങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ഇന്ത്യയുടെ ഊർജ സുരക്ഷ ഉറപ്പാക്കാൻ ഒപെകിനുള്ള താത്പര്യവും അദ്ദേഹം പങ്കുവച്ചു ഒപെക് അംഗരാജ്യങ്ങൾ ഇന്തയിലെ എണ്ണ വാതക കമ്പനികളിലെ മേധാവികൾ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കാളികളായി

ഡെമോക്രാറ്റിക് പാർട്ടി വിജയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ലെന്ന് ജോ ബൈഡൻ പറഞ്ഞു അതിനിടെ വോട്ടെണ്ണൽ നിർത്തി വയ്ക്കണമെന്ന് ട്രംപ് ട്വിറ്ററിൽ കുറിച്ചു

ആരോഗ്യപ്രവർത്തകർക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പിന്തുണ തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു